ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും

അതീവ കോവിഡ് ഭീഷ്ണിനേരിടുന്ന പ്രദേശങ്ങളിൽ ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കേന്ദ്രം പ്രത്യേക ആരോഗ്യ ീസ്ട്ഘത്തെ അയച്ചു

വർധിക്കുന്നു

തിരികെയെത്തിച്ചാൽ മതിയെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രസർക്കാരിന്റെ നിർദേശം

കോവിഡ് മഹാമാരിക്കെതിരെ അംഗരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് സംബന്ധിച്ച നിർണ്ണായക തീരുമാനങ്ങൾ ഉച്ചകോടിയിൽ ഉണ്ടാകും ചേരിചേരാ ഉച്ചകോടി അധ്യക്ഷനായ അസർബൈ ജാൻ പ്രസിഡന്റ് ഇൽഹം അലിയേവിന്റെ താല്പര്യ പ്രകാരമാണ് പ്രത്യേക ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയ്ക്ക് ശേഷം ഏറ്റവുമധികം ലോകരാഷ്ട്രങ്ങൾ അംഗങ്ങളായുള്ള സമിതിയാണ് ചേരിചേരാ പ്രസ്ഥാനം

ഹ്ഹോട്ട്സ്പോട്ട് മേഖല ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഗണ്യമാ്യുഇള്വുകൾ അനുവദിച്ചിട്ടുണ്ട് ഹോട്ട്സ്പോട്ട് ഒഴികെ ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ അന്തർ ജില്ലാ സഞ്ചാരത്തിന് അനുമതി ലഭിക്കു് ഗ്രീൻ സോണിൽ ആളുകൾ കൂട്ടം കൂടുന്നതൊഴികെ സാധാരണ് ജ്ണ്ജീവിതം അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദ്ദേക്കർ പറഞ്ഞു ഘട്ടംഘട്ടമായി ലോക്ഡൌൺ പിൻവലിച്ച് സാധാരണ ജീവ്ചിത്ം തിരിച്ചുകൊണ്ടുവരിക എന്ന സന്ദേശമാണ് സർക്കാർ നൽകുന്നത് സമ്പദ്ഘടന പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു

കോവിഡ് പ്രതിരോധ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും ഇളവുകൾ നടപ്പിലാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സിനു

ഓറഞ്ച് സോണുകളിൽ നിലവിലെ സ്ഥിതി തുടരും ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഹോട്ടലുകൾക്കും റസ്റ്റോറൻുകൾക്കും പാഴ്സലുകൾ നൽകാനായി നിലവിലുള്ള സമയക്രമം പാലിച്ച് തുറന്നു പ്രവർത്തിക്കാം ഗ്രീൻ ഓറഞ്ച് സോണുകളിലെ ഒറ്റനിലയിലുള്ള ടെക്സ്റ്റയിൽ സ്ഥാപനങ്ങൾ അഞ്ചിൽ താഴെ ജീവനക്കാരുടെ സേവനത്തോടെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കും ഈ സോണുകളിൽ നിയന്ത്രണങ്ങൾക്കു വിധേയമായി ടാക്സി യൂബർ പോലുള്ള സർവീസുകൾ അനുവദിക്കും

ചരക്കുവാഹനങ്ങളുടെ നീക്കത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് വരെ പൊതുജനങ്ങൾ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം

കോവിഡ് പ്രതിരോധത്തിന് ്രാഷ്ട്രം ഒറ്റക്കെട്ടാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്ററിൽ അറിയിച്ചു

രാജ്യത്തെ അങ്ങേയറ്റം സമർപ്പിതമായി സേവിക്കുകയും നമ്മുടെ പൌരൻമാരെ സംരക്ഷിക്കുന്നതിനായി അവർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തു അവരുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അനുശോചനം അറിയിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവ്വാണ് ൃതിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

വീടുകൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികളെ നാട്ടിലെത്തിക്കുന്നതിനല്ല ഇളവുകൾ പ്രഖ്യാപിച്ചത്

കേരളത്തിൽ തുടരാൻ താത്പര്യം പ്രകടിപ്പിക്കുന്നവരെ നിർബന്ധിച്ച് മടക്കി അയയ് ക്കേണ്ടതില്ല

കേരളത്തിൽ തുടരുന്ന അതിഥി തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായം സംസ്ഥാന സർക്കാർ നൽകുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു